റംസാൻ പ്രമാണിച്ച് വോട്ടെടുപ്പ് സമയം മാറ്റണമെന്ന ഹർജി സുപ്രീംകോട്ടതി തള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ യുഡിഎഫ് നേതൃയോഗം തിരുവനന്തപുരത്ത് തുടങ്ങി മലബാറിലെ ആദ്യ വൈറോളജിലാബിന്റെ പ്രവൃത്തി കോഴി ക്കോട് ഉടൻ ആരംഭിക്കും പ്തസ് ടു പരീക്ഷയിൽ അധ്യാപകൻ ഉത്തരക്കടലാസ് തിരു ത്തിയ സംഭവത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധമാർച്ച് നടത്തി

വിഖ്യാതമായ് തൃശൂർപൂരത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കു ന്നു ലോക്സ്ഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാന ത്തെയും ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം ഊർജ്ജിതമായി

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സജീവ മായി പ്രചാരണ രംഗത്തുണ്ട് ഇന്ന് പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനും പഞ്ചാബിൽ പ്രചാരണം നടത്തും നോമ്പുകാലം പ്രമാണിച്ച് ഏഴാംഘട്ട തെരഞ്ഞെടുപ്പിലെ വോട്ട ടുപ്പ് സമയം മാറ്റണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം നട ത്തുന്ന സ്ഥലങ്ങളിൽ നീതി ആയോഗ് പ്രധാനമന്ത്രിയുടെ ഓഫീ സിന് വിവരങ്ങൾ കൈമാറിയതിൽ പെരുമാറ്റചട്ടലംഘനമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃക്തമാക്കി ഔദ്യോഗിക സന്ദർശന ങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒന്നിച്ച് നടത്തുന്നതിൽ മന്ത്രി മാർക്കേർപ്പെടുത്തിയ വിലക്ക് പ്രധാനമന്ത്രിക്ക് ബ്രാധകമല്ലാത്തതി നാൽ ഇതു സംബന്ധിച്ച പരാതി തള്ളിയതായി ഡെപ്യൂട്ടി ഇല ക്ഷൻ കമ്മീഷണർ സന്ദീപ് സക്സേന ന്യൂഡൽഹിയിൽ അറിയി ച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ യുഡിഎഫ് നേതൃ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി

പ്രചാരണരംഗത്തെ വീഴ്ചകളും ജയസാധ്യതകളും യോഗം വിലയിരുത്തും കള്ളവോട്ട് പൊലീസുകാരുടെ തപാൽ ബാലറ്റിലെ തിരിമറി തുടങ്ങിയ വിഷയങ്ങളിൽ സമരപരിപാടികളും യോഗം തീരുമാനിക്കും നാളെ രാവിലെ പത്തിന് കെ പി സി സി നേതൃയോഗവും ഉച്ച കഴിഞ്ഞ് മൂന്നിന് രാഷ്ട്രീയ കാര്യസമിതി യോഗവും ചേരും പൊലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റിൽ തിരിമറിയുണ്ടാ യെന്നാരോപിച്ച് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും പൊലീസുകാർക്ക് നൽകിയ എല്ലാ പോസ്റ്റൽ വോട്ടുകളും പിൻവലിച്ച് വീണ്ടും വോട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തി കരമല്ലെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു പെരുമാറ്റചട്ടലംഘനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാ റാംയെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു

മലബാറിലെ ആദ്യ വൈറോളജി ലാബിന്റെ പ്രവൃത്തി ഉടൻ കോഴിക്കോട് ആരംഭിക്കും

ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തീകരിച്ച് നിർമാണം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് പൂനെയിലെ ഇൻസിറ്റിയൂട്ട് ഓഫ് വൈറ്റോളജിയുടെ അഞ്ചാമത്തെ റീജ്യനൽ സെന്ററാണ് ഇവിടെ തുടങ്ങുന്നത്

ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നിപാ വ്വൈറസ് പ്രെസ്റ്റ്നൈൽ എച്ച് വൺ എൻ വൺ രോഗങ്ങൾ തിരിച്ചറിയാനൂർ ്സാധിക്കും

വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി മുക്കം മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരം ഗവ ഹയർസെക്കൻഡറി സ്കൂളിലേക്കും മാർച്ച് നടത്തി

ഇയാൾക്കൊപ്പം യാത്രചെയ്ത മറ്റൊ രാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്

പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരുവനമ്പാടി വിഭാഗ ത്തിന്റെ തെക്കോട്ടിറക്കം അൽപംമുമ്പ് പൂർത്തിയായി പാറമേക്കാ വിന്റെ എഴുന്നള്ളത്ത് മേളത്തോടെ വടക്കുംനാഥ ക്ഷേത്രത്തിനു ള്ളിലെ ഇലഞ്ഞിമരച്ചുവട്ടിൽ എത്തി അൽപസമയ്യത്തിനകം ഇല ഞ്ഞിത്തറമേളം തുടങ്ങും

രാത്രി പൂരച്ചടങ്ങുകൾ ആവർത്തിച്ചശേഷം പുലർച്ചെ വെടി ക്കെട്ടോടെ പൂരപങ്കാളികൾ കൊട്ടിപ്പിരിയും

കൊട്ടിയൂർ ക്ഷേത്രത്തില്പ് ക്വെശാഖോത്സവത്തിന് മുന്നോ ടിയായി നീരെഴുന്നള്ളത്ത് അൽപ്പം മുൻപ് നടന്നു

മറ്റന്നാൾ പുലർച്ചെ മുതൽ പതിവുപൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും ഇടവമാസ പൂജകൾ പൂർത്തി യാക്കി ഞായറാഴ്ച രാത്രി നടയടയ്ക്കും കാലിക്കറ്റ് സർവകലാശാലയിലെ ബിരുദ പ്രവേശനത്തിന് ഏക ജാലക ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു

കണ്ണൂർ സർവകലാശാലയുടെ ഡിഗ്രി പിജി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ തയ്യാറാക്കാനായി കണ്ണൂർ വയനാട് ജില്ല കളിലെ അക്ഷയസംരംഭകർക്ക് പരിശീലനം തുടങ്ങി താവക്കര യിലെ യൂണിവേഴ്സിറ്റി ക്യാംപസിലാണ് പരിശീലനം

കെവിന്റെ അച്ഛനുൾപ്പെടെ എട്ടു സാക്ഷികളുടെ വിസ്താരമാണ് ഇന്ന് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോട തിയിൽ നടക്കുന്നത് സിവിൽ പൊലീസ് ഓഫീസർ അജയ്കു മാറിനെ വിസ്തരിച്ചു അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണി മുഖ്യ മന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു വെന്നും എന്നാൽ ഇതിന് തടയിട്ടത് മകൻ ജോസ് കെ മാണിയാണെന്നും പി ്സി ജോർജ്ജ് എംഎൽഎ വെളിപ്പെടുത്തി കുടുംബത്തിൽ പ്രിശ്നമുണ്ടാവാതി രിക്കാനാണ് മാണി മുഖ്യമന്ത്രി മോഹം മാറ്റിപ്പെച്ചതെന്നും പി സി ജോർജ്ജ് ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു കോഴിക്കോട് മണാശേരി കെഎ്സിടി ആയുർവേദ കോള ജിലെ അധ്യപക വിദ്യാർത്ഥി സ്മമരം ഒത്തുതീർപ്പാക്കാൻ ഇന്ന് വൈകിട്ട് ചർച്ചു ജോർജ്ജ് എംിതോമുസ് എംഎൽഎയുടെ മധ്യ സ്ഥതയിലാണ് ചർച്ച നടക്കുക് ക്ഴിഞ്ഞ ദിവസം താമരശ്ശേരി ഡിവൈഎസ്പി യുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പരാജ യപ്പെട്ടിരുന്നു സമരത്തെ തുടർന്ന് കോളജിൽ പരീക്ഷകൾ ഉൾപ്പെടെ മുടങ്ങൂന്ന സാഹചരൃം ഉണ്ടായിരുന്നു

സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണ ത്തോടനുബന്ധിച്ച് കോഴി ക്കോട് ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകരുടെയും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വീടുകളും പൊതു സ്ഥലങ്ങളും സന്ദർശിച്ച് ശുചീകരണം നടത്തി

കേരള ശാസ്ത്രസാഹിത്യപരിഷത്തിന്റെ നേതൃത്വത്തിൽ ചേളന്നൂർ എസ് എൻ ട്രസ്റ്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ ജ്യോതി ശാസ്ത്ര കോൺഗ്രസ് സമാപിച്ചു സമാപന സമ്മേളനം പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി കെ രാധൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിൽ പങ്കെടുത്ത വിദ്യാർഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു സംസ്ഥാന വോളിബാൾ അസോസിയേഷൻ സ്യംഘടിപ്പിക്കുന്ന വോളിബാൾ കോച്ചസ് ക്ലിനിക്ക് ഇന്ന് ജില്ലാ സ് പോർട് സ് കൌൺസിൽ ഹാളിൽ ആരംഭിക്കും വൈകീട്ട് അഞ്ചിന് കേരള സ് പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ ഉദ്ഘാടനം ചെയ്യും കൊല്ലം വാടി കടപ്പുറത്തുനിന്ന് നാലു തൊഴിലാളികളുമായി മീൻപിടിക്കാൻ പോയ വളളം കാണാതായി മത്സ്യത്തൊഴിലാളി കളും മറൈൻ എൻഫോഴ്സ്മെന്റും ഇവർക്കായി തിരച്ചിൽ തുടരു കയാണ് നീണ്ടകര സ്വദ്ദേശികളാണ് വള്ളത്തിലുണ്ടായിരുന്നത് കോഴിക്കോട് ജില്ലാ എ ഡീവിഷൻ ഫുട്ബാൾ ഫൈനലിൽ ഇന്ന് ഗുരുവായൂരപ്പൻ കോളെജും ഫാറൂഖ് കോളെജും ഏറ്റുമുട്ടും വൈകീട്ട് നാലിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക കൊച്ചി ചെല്ലാനം തീരദേശ മേഖലയിൽ കടൽഭിത്തിയും പുലി മൂട്ടും സ്ഥാപിക്കാത്തിനെതിരെ മനുഷ്യമതിൽ നിർമിച്ച് പ്രതിഷേ ധം കെ സിവൈഎം കൊച്ചിരൂപതയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതി ഷേധം സംഘടിപ്പിച്ചത് സ്ത്രീശാക്തീകരണത്തിന് വർഷങ്ങൾക്കുമുമ്പേ മാതൃക കാണിച്ച വ്യക്തിയായിരുന്നു ചിത്രകാരി ടി

ടി

ലളിതകലാ അക്കാദമി കുറ്റിപ്പുറത്ത് സംഘടിപ്പ ടി

പദ്മിനി അനുസ്മരണപരിപാടിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഹയർ സെക്കന്ററി പ്തസ് വൺ പ്രവേശനത്തിന് ഭിന്നശേഷി വിദ്യാർഥികളുടെ വയനാട് ജില്ലാതല കൌൺസിലിംഗ് നാളെ വയനാട് പനമരം ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ നട ബന്ധപ്പെട്ട രേഖകളും മാർക്ക്ലിസ്റ്റു മായി ത്തും രക്ഷിതാക്കൾക്കൊപ്പം വിദ്യാർത്ഥികൾ എത്തേണ്ടതാണ് ഭാരതീയ വിദ്യാനികേതന്റെ രണ്ടു ദിവസത്തെ സംസ്ഥാന പ്രതിനിധിസഭ കോഴിക്കോട് മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിൽ സമാപിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാനികേതൻ വിദ്യാർത്ഥികളെ പ്രതിനിധിസഭ അനുമോദിച്ചു നാനൂറിലേറെ പ്രതിനിധികൾ പങ്കെടുത്തു